ആവിഷ്ക്കരിച്ച സാഗർ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അനുഭവങ്ങൾ പങ്കു വയ്ക്കുണ്ണമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ

വർദ്ധിച്ചു

ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും അടുത്ത മാസം അഞ്ച് മുതൽ നിയന്ത്രിത മത്സൃബന്ധനം ദീർഘദൂര ബസ് സർവ്വീസുകൾ നാളെ പുനരാരംഭിക്കും

പുതിയ മൌറീഷ്യസ് സുപ്രീം കോടതി മന്ദിരം മൌറീഷ്യൻ പ്രധാനമന്ത്രി പ്രവീന്ദ് ജുഗ്നൌത്തിനൊപ്പം സംയുക്തമായി ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് പ്രധാനമന്ത്രി ഇക്കാരൃം വൃക്തമാക്കിയത് മൌറീഷ്യസുമായുള്ള ഇന്ത്യയുടെ പ്രത്യേക സൌഹൃദ ബന്ധത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി ആഴത്തിലുള്ള ഉറച്ച വേരുകളുള്ള സാംസ്കാരിക ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നായി ഇരു രൃജ്ട്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വിശേഷിപ്പിച്ചു സാമ്പത്തിക്ട് തിൽല്പര്യങ്ങളോ ലാഭേച്ഛയോ കണക്കാക്കിയല്ല മറ്റു ഊജ്യ്ങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധമെന്നും അദ്ദേഹം പറഞ്ഞു ക്ലോവിഡ് മഹാമാരി ഫലപ്രദമായി കൈകാര്യം ചെയ്തതീന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മൌറീഷ്യസ് സർക്കാരിനെയും ജ്നങ്ങളെയും അഭിനന്ദിച്ചു

തൽക്ഷണ മുത്തലാഖ് നിരോധന നിയമം പാർലമെന്റിൽ പാസായിട്ട് ഇന്ന് ഒരു വർഷം മുസ്തീം വനിതകൾക്ക് ലിംഗനീതി ഉറപ്പാക്കിയ ഐതിഹാസിക ദിനമാണിതെന്ന് കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു മുസ്തീം വനിതകളെ അഭിസംബോധന ചെയ്ത് സംഘടിപ്പിച്ച വെർച്ചൽ റാലിയിൽ കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി മുഖ്താർ അബ്ബാസ് നഖ്വി രവിശങ്കർ പ്രസാദ് എന്നിവർ പങ്കെടുത്തു

ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ ആറാമത് സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

നഗര വികസനം കടൽമാലിന്യ നിർമ്മാർജ്ജനം അന്തരീക്ഷ മലിനീകരണ നിയന്ത്രണം നദീജല ശുദ്ധീകരണം എന്നീ കാര്യങ്ങളിൽ ഇന്ത്യ ഉയർന്ന പരിഗണനയാണ് നൽകുന്നതെന്ന് ശ്രീ

പുതിയ നയത്തിന് സർക്കാർ അംഗീകാരം നൽകീയതിൽ സന്തോഷിക്കുന്നതായി ഉപരാഷ്ട്രപതി ടിറ്ററിൽ ക്ടുപ്പ്ചു മാതൃഭാഷയ്ക്കും രാജ്യത്തെ മറ്റ് ശ്രേഷ്ഠഭാഷകൾക്കും പ്രാധാന്യം ലഭിക്കുകയാണ്

ധാർമ്മികതയ്ക്കും ഭരണഘടനാ മൂലൃങ്ങൾക്കും മാനവികതയ്ക്കും പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ നയം ശ്രേഷ്ഠപൌരൻമാരെ വാർത്തെടുക്കാൻ സഹായകരമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

പരിശോധനയും ചികിത്സയും വേഗത്തിലാക്കി രാജ്യത്തെ കോവിഡ് മുക്തമാക്കാനുള്ള ശ്രമങ്ങളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി മഹാമാരിയെ ഫലപ്രദമായി നേരിടുന്നതിന് സമഗ്രമായ ടെസ്റ്റ് ട്രാക്കിംഗ് ട്രീറ്റിങ്ങ് തന്ത്രം തുടരുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങൾക്ക് പുറമെ യു എസ് കാനഡ യു

ജർമ്മനി ഓസ്ട്രേലിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും സർവ്വീസ് നടത്തും

ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ഇന്ത്യയുടെയും ചൈനയുടെയും മുതിർന്ന സൈനിക കമാൻഡർമാർ ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു

ആഗസ്റ്റ് അഞ്ചുമുതൽ നിയന്ത്രിത മത്സൃബന്ധനം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

എല്ലാ ബോട്ടുകളും രജിസ്ട്രേഷൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാം കണ്ടെയിൻമെന്റ് സോണിലും മത്സ്യബന്ധനം നടത്താം

മത്സ്യബ്ദ്ധ്ൻത്തിനു പുറപ്പെടുന്ന സ്ഥലത്തുതന്നെ നിർബന്ധമായും തിരിച്ചെത്തണം

എസ് ആർ ടി സി ദീർഘദൂര യാത്രാ സർവ്വീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു

കൊല്ലത്ത് കണ്ടെയിൻമെന്റ് മേഖലകളിൽ ഇളവ് അനുവദിച്ച സ്ഥലങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കശുവണ്ടി ഫാക്ടറികൾ തുറക്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിജിലൻസ് ഉൾപ്പെടെയുള്ള പോലീസിന്റെ എല്ലാ സ്പെഷ്യൽ യൂണിറ്റുകളിലെയും ഉദ്യോഗസ്ഥരെ നിയോഗിക്കും

അൺലോക്ക് മൂന്നിന്റെ ഭാഗമായി കേന്ദ്രം നിർദ്ദേശിച്ച കാര്യങ്ങൾ അതേപടി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

മഹത്തായ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിന് പ്രതിജ്ഞ പുതുക്കാനുള്ള അവസരമാണിത്

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നമസ്ക്കാരം നിർവഹിച്ചത്

കേരളത്തിൽ എം പി വീരേന്ദ്രകുമാറിന്റെയും യു പി യിൽ സമാജ് വാദി പാർട്ടി നേതാവ് ബേനി പ്രസാദ് വർമ്മയുടെയും നിര്യാണത്തെ തുടർന്ന് ഒഴിവു വന്ന സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്

ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ഷ്യത്തനംതിട്ട തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ്യെല്ലാ അലർട്ട് അടുത്ത രണ്ടു ദിവസങ്ങളിലും വിവിധ് ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

നേട്ടത്തിലായിരുന്ന വിപണികൾ ഇപ്പോൾ നഷ്ടത്തിൽ